എന്നാൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരും കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്ത് സംസ്ഥാനങ്ങൾ ലോക്ഡൌൺ ഏർപ്പെടുത്തരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജഷിതകുമാരി

രുര അടുത്ത മാസം ഏഴു മുതൽ മെട്രോ ട്രെയിൻ സർവീസുകൾ പുനഃരാരംഭിക്കും

കണ്ടെയൻമെന്റ് സോണിന് പുറത്തുള്ള ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്ന് വരെ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണമെങ്കിൽ സ്കൂളുകളിൽ വരാം

എന്നാൽ നൂറിൽ കൂടുതൽ പേർ ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല സാമൂഹിക അകലം പാലിച്ചും മാസ്ക് ധരിച്ചും തെർമ്മൽ സ്കാനർ ഉപയോഗിച്ചും സോപ്പുപയോഗിച്ച് കൈകൾ കഴുകിയും വേണം ഇത്തരം പരിപാടികളിൽ ആളുകൾ പങ്കെടുക്കാൻ

അന്തർ സംസ്ഥാന യാത്രകൾക്കും സംസ്ഥാനത്തിന് അകത്തെ യാത്രകൾക്കും നിയന്ത്രണം പാടില്ല ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ കൊച്ചി മെട്രോ സർവീസ് അടുത്ത മാസം ഏഴിന് പുനഃരാരംഭിക്കും

നൂറിൽ താഴെ രോഗികളുള്ള കണ്ണൂർ പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിലും കൂടുതൽ പേരും സമ്പർക്ക രോഗികളാണ്

കോവിഡ് പരിശോധനാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കാര്യക്ഷമമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് അവർ നിർദ്ദേശം നൽകി രുദ മഞ്ചേരിയിൽ ആയിരം കിടക്കകളോട് കൂടിയ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ മഞ്ചേരി നോബിൾ സ്കൂൾ ആൻഡ് കോളേജ് ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു

ദേഴ കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ മത്സ്യ ലേലം നടത്തിയ മത്സ്യത്തൊഴിലാളിക്കെതിരെ നടപടിയെടുത്തതായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹാർബറുകൾ ലേല ഹാളുകൾ എന്നിവിടങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനായി മത്സ്യ ലേലം പൂർണമായും നിരോധിച്ചിരുന്നു

ദേദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ചിന്തകൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഇന്ന്

ദൂരദർശനും മൻകി ബാത്ത് സംപ്രേഷണം ചെയ്യും

പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണം കഴിഞ്ഞാലുടൻ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടാകും ദേദ ജി എസ് ടി നഷ്ടപരിഹാരം കേന്ദ്രത്തിൽ നിന്ന് പൂർണമായി കിട്ടിയേ തീരൂവെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതിന് വായ്പയെടുക്കേണ്ട ചുമതല സംസ്ഥാനങ്ങൾക്കു മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഒന്നാം ഓണമെന്നറിയപ്പെടുന്ന ഈ ദിവസം നാളത്തെ തിരുവോണത്തിന് അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് മലയാളികൾ കോവിഡ് മഹാമാരിയുടെ പരിമിതിക്കിടയിലും ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും ഓണവിപണിയും സജീവമാകും കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് ഓണാഘോഷം ഒരുമയുടെ കൂടിച്ചേരലെന്ന മഹത്തായ സന്ദേശമാണ് ഓണം നൽകുന്നത് ദദ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരിമിതികൾക്കുള്ളിൽ നിന്ന് കൃത്യമായ കരുതലോടെ വേണം ഇത്തവണ ഓണത്തെ വരവേൽക്കാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കോവിഡ് വ്യാപനം ഉണ്ടാവാൻ ഇട നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കാതെ നോക്കണമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എല്ലാവിധ വേർതിരിവുകൾക്കുമതീതമായി എല്ലാമനുഷ്യരും സന്തോഷത്തോടെ കഴിയുന്ന ഒരു നല്ല കാലത്തിന്റെ പിറവിക്കായി ഓണം എന്നും പ്രചോദനമാകട്ടെയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എല്ലാ മലയാളികൾക്കും ഓണാശംസ നേർന്നു

തിരുവോണ പൂജകൾക്ക് ശേഷം അടുത്തമാസം രണ്ടിന് നട അടയ്ക്കും കോവിഡ് പശ്ചാത്തലത്തിൽ തീർഥാടകർക്ക് പ്രവേശനമില്ല

പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സി

രുദ ഓണം അവധി ദിവസങ്ങളിൽ പ്രകൃതി ചൂഷണം തടയുന്നതിനായി പട്ടാമ്പി മണ്ണാർക്കാട് താലൂക്കുകളിൽ പ്രത്യേക സ്ക്വാഡുകൾ ഒറ്റപ്പാലം പരിശോധന ആരംഭിച്ചു പട്ടാമ്പിയിൽ ഇന്നലെ അനധികൃതമായി കുന്നിടിച്ച് മണ്ണും പുഴ മണലും കടത്തുകയായിരുന്ന എട്ട് ടിപ്പർ ലോറികളും ഒരു മണ്ണ് മാന്തി യന്ത്രവും സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി ദർ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓണക്കിറ്റ് വിതരണം നടത്തി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു തിരഞ്ഞെടുത്ത ശ്രോതാക്കളുടെ വീട്ടിലെത്തിയാണ് കിറ്റ് നൽകിയത് ദേദ പോപ്പുലർ ഫിനാൻസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ പത്തനംതിട്ട ജില്ലാപൊലീസ് മേധാവി കെ

ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പണമിടപാട് നടന്നതായി സംശയിക്കുന്നതിനാൽ ഇന്റർപോളിന്റെ സഹായം തേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ രണ്ടുപേരും ചങ്ങനാശ്ശേരിയിൽ നിന്ന് രണ്ടുപേരും കേസിൽ പിടിയിലായതായും മുഖ്യമന്ത്രി പറഞ്ഞു ടെട യു ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ച പിണറായി ഗവൺമെന്റ് മറ്റൊരു തെറ്റുകൂടി തിരുത്തുകയാണെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു സ്വാശ്രയ കോളജുകൾഓട്ടോണമസ് കോളജുകൾ തുടങ്ങി യു ഡി എഫ് ഗവൺമെന്റിന്റെ നിരവധി പരിപാടികളെ ആദ്യം നഖശിഖാന്തം എതിർക്കുകയും പിന്നീട് നടപ്പാക്കുകയും ചെയ്ത എൽ ഡി എഫ് ഗവൺമെന്റ് ഇക്കാര്യത്തിലും അതേപാത പിൻതുടർന്നിരിക്കുകയാണെന്നും സി പി ഐ എമ്മിന്റെ മനംമാറ്റത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു

ഒരുഭ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് വെർച്വൽ എക്സ്പോയിൽ അൻപതോളം സ്റ്റാർട്ടപ്പ് സംരഭങ്ങൾ പ്രദർശിപ്പിച്ചു

കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ പരസ്പര സഹകരണത്തോടെ തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്